പാകിസ്ഥാനിലെ നൻകാനാ സാഹിബ് ഗുരുദ്വാരയിൽ ഉണ്ടായ ആക്രമണത്തെ ഇന്തൃ ശക്തമായി അപലപിച്ചു

നയിക്കാൻ യുക്ത്യിസ്ഹ്മായ സാങ്കേതിക വിദ്യകൾ ആവിഷ്കരിക്കണ്ട് ്ട്രമന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ഡോളറായി ഉയർന്നു

കേരളത്തിൽ കേന്ദ്ര മാതൃകയിൽ വ്യവസായ സംരക്ഷണ സേന രൂപീകരിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയതായി മുഖ്യമന്ത്രി

ഗുരുദാരയിൽ സുരക്ഷിതത്വവും സമാധാനവും ഉറപ്പാക്കാൻ പാകിസ്ഥാൻ നടപടി എടുക്കണമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു

സംഘടിച്ചെത്തിയ നിരവധി പേർ ഗുരുദാരയിലേക്ക് കല്ലെറിഞ്ഞു

നൻകാന ഗുരുദ്ധാരയും പരിസരവും സംഭരക്ഷിക്കാനാവശ്യമായ എല്ലാ നടപടികളും പാകിസ്ഥാൻ സ്വീകരിക്ക്ണ്ട്മെന്ന് വിദേശകാരൃ മന്ത്രാലയം പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു പ്രി പാകിസ്ഥാനിലെ നൻകനാ സ്ക്രീഫ്യബ് ഗുരുദ്ധാരയിലുണ്ടായ ആക്രമണം ഞെട്ടിപ്പിക്കുന്നതാണെന്ന് ശിരോമണി അകാലിദൾ പ്രസിഡന്റ് സുഖ്ബീർ സിംഗ് ബാദൽ പറഞ്ഞു

രാജ്യത്തെ സിഖ് സമുദായത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടത് പാക് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് ആക്രമണത്തെ തുടർന്ന് ഒറുപ്പെട്ടുപോയ വിശ്വാസികൾക്ക് സുരക്ഷ നൽകണമെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻ ഖാനോട് ആക്രമണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടി എടുക്കണമെന്ന് ഡൽഹി ഗുരുദ്ധാര മാനേജ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റ് മഞ്ജീന്ദർ സിംഗ് സിർസ പാക് പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടി ന്യൂസ് ഡെസ്ക് ആകാശവാണി

പാകിസ്ഥാനിൽ ന്യൂനപക്ഷ സിഖ് വിഭാഗത്തിനെതിരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ വേദനാജനകമാണെന്ന് ലേബർ പാർട്ടി എം പി യായ പ്രീത് കയ്യൂർ ഗിൽ ട്വിറ്ററിൽ കുറിച്ചു

ബഹിരാകാശ ദൌത്യത്തിന്റെ വിജയത്തിനുശേഷം ശാസ്ത്രജ്ഞർ ഇനി ശ്രദ്ധനൽകേണ്ടത് ആഴക്കടൽ പര്യവേഷണത്തിനാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ വിജയം ഇന്ത്യയുടെ വളർച്ചയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജൽ ജീവൻ പദ്ധതിയുടെ ശക്തി സാങ്കേതിക വിദ്യയാണെന്നും ജല പുനഃചംക്രമണത്തിനായി ചെലവു കുറഞ്ഞതും മെച്ചപ്പെട്ടതുമായ സാങ്കേതികവിദ്യകൾ വികസിപ്പിക്കേണ്ട ഉത്തരവാദിത്തം ശാസ്ത്രജ്ഞർക്കുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു സംരംഭക സൂചികയിലെ സ്ഥാനം മെച്ചപ്പെടുത്താൻ സാധിച്ചതിൽ പ്രധാനമന്ത്രി ശാസ്ത്രജ്ഞരെ അഭിനന്ദിച്ചു

ഇതിനായി കരസേനയുമായി കൌൺസിൽ ധാരണയില്ലെത്തി കനത്ത മഞ്ഞുവീഴ്ചയെ തുടർന്ന് ശ്രീനഗർ സോജില പാതയിലും മണാലി മുതൽ റോത്താങ് വരെയും റോഡ് ഗതാഗതം തടസ്സപ്പെട്ടതിനെ തുടർന്നാണ് തീരുമാനം

പാർട്ടി ദേശീയ വർക്കിങ് പ്രസിഡന്റ് ജെ

നിയമത്തിലൂടെ ആരുടേയും ഒരു അവകാശവും നഷ്ടമാകുന്നില്ലെന്ന് ശ്രീ

അയൽരാജ്യങ്ങളിൽ നിന്ന് എത്തി അഭയാർത്ഥികളായി കഴിയുന്നവർക്ക് മനുഷൃത്വപരമായ പിന്തുണ നൽകുകയാണ് നിയമത്തിലൂടെ ലക്ഷ്യമിടുന്നത് പ്രതിപക്ഷ പാർട്ടികൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു

സംസ്ഥാന മന്ത്രിമാർ പാർട്ടി നേതാക്കൾ പാർട്ടി ഭാരവാഹികൾ എന്നിവർ പരിപാടികളിൽ പങ്കെടുക്കും ലഖ്നൌവിൽ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് പരിപാടി ഉദ്ഘാടനം ചെയ്യും പാർട്ടി വർക്കിംഗ് പ്രസിഡന്റ് ജെ

നദ്ദ ഗാസിയാബാദിലും മുഖ്യമന്ത്രി യോഗി ആദിതൃനാഥ് ഗൊരഖ്പൂരിലും പരിപാടികളിൽ പങ്കെടുക്കും റാംപൂരിലും വാരാണസിയിലും കേന്ദ്രമന്ത്രിമാരായ മുഖ്താർ അബ്ബാസ് നഖ്വിയും ധർമ്മേന്ദ്ര പ്രഥാനും ജനങ്ങളുമായി ആശയവിനിയമം നടത്തും

ജെ

ജെ

പരിഷത്തിൽ ബി ജെ

ശിവസേന എൻ സി

വിദേശ കറൻസിയാണ് ഇതിലെ മുഖ്യ ഇനം

ന്യൂസ് ഡെസ്ക് ആകാശവാണി

കാർഷികരംഗത്തെക്കുറിച്ച് വലിയ പ്രചാരം നൽകുന്ന ഗവൺമെൻാണ് കേരളത്തിലേത് ആധുനിക സാങ്കേതിക വിദ്യ നല്ല രീതിയിൽ കേരളം പ്രയോജനപ്പെടുത്തുന്നുെന്നും ഗവർണ്ണർ പറഞ്ഞു

മലപ്പുറം പാിക്കാട് ഇന്ത്യൻ റിസർവ് ബറ്റാലിയന്റെ പാസിങ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹം

പാിക്കാട് ക്യാംപിൽ ആറ് പ്ലറ്റൂണുകളിലായി നിരന്ന സേനയുടെ സല്യൂട്ട് മുഖ്യമന്ത്രി സ്വീകരിച്ചു

ഇന്നലെ രാവിലെയാണ് പ്രസിഡന്റ് ഡോണൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം അമേരിക്കൻ ദൌത്യസേന ഇറാഖിൽ വച്ച് ഖാസിം സൊലൈമാനിയെ വധിച്ചത്

ബാഗ്ദാദിലെ ഇറാൻ പിന്തുണയുള്ള ഭീകരതാവളങ്ങൾ അമേരിക്ക് തൃകർത്തതിന്റെ തൊട്ടടുത്ത ദിവസം ബാഗ്ദാദിലെ അഭ്മേരിക്കൻ എംബസി ആക്രമിക്കപ്പെട്ടു

എസും ഇറാനും തമ്മിലുള്ള സംഘർഷത്തിൽ ലോകരാഷ്ട്രങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചിട്ടു്

മേഖലയിൽ സമാധാനവും സുസ്ഥിരതയും സുരക്ഷയും പരമപ്രധാനമാണെന്ന് വിദേശകാര്യമന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു

ആറ് മാസം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പ് തർക്കത്തിൽപ്പെട്ടതിനെ തുടർന്ന് ഇവോ മൊറാലെസ് രാജി വച്ചിരുന്നു ജനകീയ പ്രക്ഷോഭത്തെ തുടർന്നായിരുന്നു രാജി ജീനൈൻ അനസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല ഭരണകൂടമാണ് തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്നത്

പുതുവർഷ്ത്ത ആദ്യ മത്സരമാണ്